അർമേനിയ അസർബൈജാൻ സംഘർഷത്തിനു അയവില്ല സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷ സമിതിയുടെ അടിയന്തര യോഗം

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ഹൈദരാബാദ് പോരാട്ടം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നദാലും സെറീനയും രണ്ടാം റൌണ്ടിൽ

ഉത്തരാഖണ്ഡിൽ നിന്ന് പശ്ചിമബംഗാളിലൂടെ ഗംഗാസാഗർ എത്തുന്നതുവരെ ഗംഗാജലം ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ സമൃദ്ധമാക്കുന്നു ഗംഗയിൽ മലിനജലം എത്തുന്നത് തടയാൻ നമാമി ഗംഗ പദ്ധതിയിലൂടെ നിരവധി നടപടികളാണ് സ്വീകരിച്ചുവരുന്നത് പുതിയ സാങ്കേതികവിദ്യയും പുതിയ സമീപനവും സ്വീകരിച്ചു വേണം ജലമലിനീകരണ നിയന്ത്രണ നടപടികൾ നടപ്പാക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു

എൽ

ഋഷികേശിലെ ലക്കാഡ്ഘട്ടിലെ മലിനജല സംസ്കരണ പ്താന്റുകളുടെ ഉദ്ഘാടനം ഗംഗാ നദി മാലിനൃമുക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും

ഗംഗയുമായി ബന്ധപ്പെട്ട ആദ്യ മ്യൂസിയമായ ഗംഗ അവലോകൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലങ്കാന ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവ സംഭരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിപണി വില താങ്ങുവിലക്ക് താഴെ പോവുകയാണെങ്കിൽ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് ഖാരീഫ് വിളകൾ സംഭരിക്കുന്നതിന് അനുമതി നൽകും

ആഭ്യന്തര വിദേശ നിർമ്മാതാക്കളിൽ നിന്നാകും പ്രതിരോധ സാമഗ്രികൾ വാങ്ങുക

മൂന്ന് സേനാ വിഭാഗങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് വാങ്ങുന്നത്

ആകെ കോവിഡ് ബാധിതരിൽ അഞ്ചിലൊന്ന് പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത് എന്നും ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

രൂണ്ട്രക്കോടിയോളം പേർ ഇതുവരെ രോഗ മുക്തരായിട്ടുണ്ട്

രണ്ടു ലക്ഷത്തിലധികം മരണവും റിപ്പോർട്ട് ചെയ്തു

കേരളത്തിൽ രോഗവ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും

ഇന്ന് പുലർച്ചെ മാൻകോട്ട് സെക്റിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് വെടിവെപ്പുണ്ടായത്

ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അനുബന്ധ പ്രശ്നങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക ഹൃദയ ദിനം ആചരിക്കുന്നത്

വിശദാംശങ്ങളുമായി ജോത്സന ഹൃദ്രോഗം ഒരു സാംക്രമിക രോഗമെന്നോണം ലോകമെമ്പാടും പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ഇത് തടയുന്നതിന്റെ പ്രധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് കേന്ദ്ര ആരോഗൃമന്ത്രാലയത്തിന്റെ കീഴിലും സംസ്ഥാന ആരോഗ്യവകുപ്പുകളുടെ ആഭിമുഖ്യത്തിലും ഇന്ന് രാജ്യമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഈ സാഹചര്യത്തിൽ ഹൃദ്രോഗമുള്ളവർ കോവിഡ് പകരുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദേശിക്കുന്നു ലോകൃത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും ഈ ഭീഷണിയിലാണ് വിവിധ പഠനങ്ങൾ പ്പക്ാരം ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്

കേരളത്തിലെ ജീവിതശൈലിയാണ് ഇതിന് കാരണമെന്നും വിലയിരുത്തലുണ്ട്

അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പരിക്കേറ്റ രണ്ടു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഇരുഭാഗത്തും വലിയ തോതിൽ ആളപായം സംഭവിച്ചതയാണ് അർമീനിയൻ സൈനികർ കൊല്ലപ്പെട്ടത്ായി അസർബൈജാൻ പ്രതിരോധ മന്ത്രാലയം അറിയ്യിച്ചു ് എന്നാൽ അർമീനിയൻ പ്രതിരോധ മന്ത്രാലയം ്റിപ്പോർട്ടുകൾ തള്ളി

സംഘർഷം അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും റഷ്യയും ഇടപെട്ടിട്ടുണ്ട്

ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ നാലാം ഘട്ടമാണ് ഇന്നലെ അവസാനിച്ചത്

എൽ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽ റൈസേഴ്സ് ഹൈദരാബാദുമായി സൺ ഏറ്റുമുട്ടും

ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി